ഇരുപതാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യൻ സംഘത്തെ നയിക്കും

ഉജ്ജ്വല ജയം

എൽ ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം

റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അദ്ധ്യക്ഷതയിലാണ് ഉച്ചകോടി ചേരുന്നത്

ഇന്ത്യ പാകിസ്ഥാൻ ചൈന ഉൾപ്പെടെ എട്ട് അംഗരാജ്യങ്ങളും നാല് നിരീക്ഷക രാജൃങ്ങളുടെ തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇന്ത്യ മുഴുവൻ സമയ അംഗമായി പങ്കെടുക്കുന്ന മൂന്നാമത്തെ എസ്

ഒ ഉച്ചകോടിയാണിത്

കഴിഞ്ഞ മൂന്ന് വർഷമായി എസ്

ഉത്തർപ്രദേശിലെ വാരണസിയിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി പ്രാദേശിക ഉൽപ്പന്നങ്ങളെയും അവയുടെ ഗുണനിലവാരത്തെയും പ്രശംസിക്കുന്നത് കൂടുതൽ പേരെ അവ വാങ്ങാൻ പ്രേരിപ്പിക്കും

വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രത്തിനൊപ്പം ലോക്കൽ ഫോർ ദീപാവലി എന്ന മന്ത്രം എല്ലാവരും ഏറ്റെടുക്കണം പരമാവധി പ്രാദേശിക ഉത്പന്നങ്ങൾ വാങ്ങി ദീപാവലി ആഘോഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഒഡീഷയിലെ കട്ടക്കിലാണ് ആധുനിക സജ്ജീകരണങ്ങളോടെ കാര്യാലയം ഉൾപ്പെടുന്ന സമുച്ചയം സ്ഥാപിച്ചിട്ടുള്ളത്

ക്ടോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്

സർക്കാർ നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ടിനൊപ്പം ധനമന്ത്രി നിർമ്മല സീതാരാമൻ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കും

ഡി ഒ ഭവൻ പരിസരത്ത് സ്ഥാപിച്ച ഉപഗ്രഹ പ്രതിരോധ മിസൈലിന്റെ മാതൃക രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ് അനാവരണം ചെയ്തു ഒരു റിപ്പോർട്ട്

മിസൈലിന്റെ വിജയകരമായ പരീക്ഷണത്തോടെ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ആസ്തി വസ്തുക്കളുടെ സംരക്ഷണത്തിൽ ഇന്ത്യ ലോകത്ത് നാലാം സ്ഥാനത്തേക്കുയർന്നു

ഉപഗ്രഹ പ്രതിരോധ മിസൈലിന്റെ മാതൃക ഭാവിയിൽ ഇത്തരത്തിലുള്ള ദൌതൃത്തിൽ ശാസ്ത്രജ്ഞർക്ക് പ്രചോദനമാകുമെന്ന് ഡി

ന്യൂസ് ഡെസ്ക് ആകാശവാട്ണി

ഇന്നലെ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പദ്ധതിക്ക് അനുമതി ലഭിച്ചത്

അന്വേഷണ ഏജൻസിക്കു മുന്നിൽ നാളെ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത് റാംപാലിന്റെ മുംബൈയിലെ വസതിയിൽ ഇന്നലെ നടന്ന റെയ്ഡിൽ ഇലക്ട്രോണിക് വസ്തുക്കൾ ഉൾപ്പെടെ ഒട്ടേറെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസയച്ചത്

വി എഡിറ്ററുമായ അർണബ് ഗോസ്വാമി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പ്രതികരണ മറിയിക്കാൻ റെയ്ഗാഡ് പോലീസിന് അലിബാഗ് കോടതി നിർദ്ദേശം നൽകി ഇടക്കാല ജാമ്യാപേക്ഷ തള്ളിയ ബോംബെ ഹൈക്കോടതി പൂർണ ജാമ്യ ഹർജി നൽകാൻ അർണബിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് അലിബാഗ് കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ജാമ്യ ഹർജ്ജിയും റെയ്ഗാഡ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും

കേരള ആരോഗ്യ മന്ത്രി കെ കെ ശൈല്പജ് ഉൾപ്പെടെ മറ്റ് സംസ്ഥാന ആരോഗ്യ മന്ത്രിമാരും ഒൻപത് സംസ്ഥാനങ്ങളിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും അവ്വലോകന യോഗത്തിൽ പങ്കെടുത്തു

രോഗസ്ഥിരീകരണ നിരക്കും പ്രതിദിന മരണസംഖ്യയും തുടർച്ചയായി കുറയുന്ന പ്രവണതയാണ് കാണുന്നത്

ബി ബി എസ് ബി ഡി എസ് പ്രവേശനത്തിനുള്ളി റ്റാങ്ക് പട്ടിക തിങ്കളാഴ്ച പ്രസിദ്ധപ്പെടുത്തുമെന്ന് ആര്യോഗൃ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അറിയിച്ചു

മൂന്നര കോടി രോഗികൾ സുഖം പ്രാപിച്ചു

എൽ വിശേഷങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി

ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടെത്തിയ സൂപ്പർ നോവാസിനെ തകർത്താണ് ട്രെയിൽ ബ്ലെയ്സേഴ്സ് അവരുടെ കന്നിക്കിരീടം സ്വന്തമാക്കിയത് ഇന്ന് നടക്കുന്ന ഐ

എൽ ഫൈനൽ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

രണ്ടാം യോഗൃതാ മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് ഡൽഹി ഫൈനൽസിലേക്ക് കടന്നത്

പകരം ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രം ഡയറക്ടർ ക്രിസ്റ്റഫ്ടർ മില്ലർക്ക് പ്രതിരോധ സെക്രട്ടറിയുടെ ചുമതല നൽകി

ഈ പശ്ചാത്തലത്തിലാണ് പ്രതിരോധ സെക്രട്ടറിയെ തൽസ്ഥാനത്തു നിന്നും അദ്ദേഹം നീക്കിയത്

എൽ

കഴിഞ്ഞ ഞായറാഴ്ചയാണ് മ്യാൻമറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടെണ്ണലിന് സമയം ആവശ്യമായതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രാഥമിക ഫലങ്ങൾ പുറത്തുവിട്ടിട്ടില്ല